എം പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ പ്രധാനമന്ത്രി നരേ ന്ദ്രമോദിക്കും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായ്ക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ ഹർജിയിൽ വാദം കേൾക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു

ഏറ്റവും കൂടു തൽ വിജയം കോഴിക്കോട് ജില്ലയിൽ കുറവ് പത്തനംതിട്ട യിൽ പ്പസ് വൺ പ്രവേശനത്തിന് ഓൺലൈനായി മറ്റന്നാൾ മുതൽ അപേക്ഷ സ്വീകരിക്കും

ഐക്യരാഷ്ട്ര സംഘടന ജനീവയിൽ സംഘടിപ്പിക്കുന്ന ലോക പുനർനിർമ്മാണ സമ്മേളനം ഉൾപ്പെടെ പരിപാടികളിൽ പങ്കെ ടുക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചു പൊലീസുകാരുടെ തപാൽ വോട്ട് ക്രമക്കേടിൽ നടപടി ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ കൊച്ചുവേളി നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസും തിരുവ നന്തപുരം മധുര അമൃത എക്സ്പ്രസും നാളെ സ്വതന്ത്ര ട്രെയി നുകളായി സർവീസ് തുടങ്ങും

പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ പ്രധാനമന്ത്രി നരേ ന്ദ്രമോദിക്കും ബി

പി അധ്യക്ഷൻ അമിത്ഷായക്കുമെതിരെ നട പടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ ഹർജിയിൽ വാദം കേൾക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു ഇക്കാര്യത്തിൽ തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പുതിയ ഹർജി സമർപ്പിക്കാൻ പരാതിക്കാരി കോൺഗ്രസ് എം പി സുസ്മിത ദേവ്നോട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിയിൽ ബി

എഫ് മുൻ ജവാൻ തേജ് ബഹാദൂർ യാദവിന്റെ പത്രിക തള്ളിയ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ പരാതി പരിശോധിക്കാൻ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു

പത്രിക തള്ളിയതിനെതിരെ തേജ് ബഹാദൂർ നൽകിയ കേസ് നാളെ വീണ്ടും പരിഗണിക്കും കാവൽക്കാരൻ കള്ളനെന്ന് സൂപ്രീംകോടതി പറഞ്ഞുവെന്ന പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കോട തിയിൽ നിരുപാധികം മാപ്പുപരഞ്ഞു

ജെ പി എം പി മീനാക്ഷി ലേഖി നൽകിയ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടികൾ അവ സാനിപ്പിക്കണമെന്ന് അദ്ദേഹം പുതുതായി കോടതിയിൽ നൽകിയ മൂന്ന് പേജ് വരുന്ന സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടു പരാമർശ ത്തിൽ നേരത്തെ രാഹുൽഗാന്ധി ഖേദപ്രകടനം നടത്തിയിരുന്നെ ങ്കിലും അത് പോരെന്നും മാപ്പുപറയണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ചാണ് പുതിയ സത്യവാങ്മൂലം നൽകിയത്

യി ഉൾപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്നവരുടെ അവകാശവാദങ്ങളും പരാതി കളും കൈകാര്യം ചെയ്യുന്നതിന് അസം ദേശീയ പൌരത്വ രജി സ്റ്റർ കോഓർഡിനേറ്റർ പ്രദീക് ഹജേലക്ക് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ബെഞ്ച് സ്വതന്ത്രമായ അധികാരം നൽകി

സി യിലെ എംപാനൽഡ് ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ഇതുസംബന്ധിച്ച് കെ എസ്

ടി സി നൽകിയ അപ്പീലാണ് കോടതി പരിഗണിക്കു ന്നത് സംസ്ഥാനത്തെ ഹയർ സെക്കൻ്ററി വൊക്കേഷണൽ ഹയർ സെക്കന്ററി ടെക്നിക്കൽ ഹയർ സെക്കന്റി ആർട്ട് ഹയർ സെക്കൻ്ററി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു

എച്ച്

എച്ച്

കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയശത മാനം

ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എ പ്തസ് നേടിയത് മലപ്പുറം ജില്ലയിലാണ്

പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എ ഷാജഹാനാണ് തിരുവ നന്തപുരത്ത് ഫലം പ്രഖ്യാപിച്ചത്

പ്തസ് വൺ പ്രവേശനത്തിന് ഓൺലൈനായി മറ്റന്നാൾ മുതൽ അപേക്ഷ സമർപ്പിക്കാമെന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അറി യിച്ചു

മുഖ്യഘട്ടങ്ങളിലെ രണ്ട് അലോട്ട്മെന്റുക ളിൽ പ്രവേശനം പൂർണമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന തായി അദ്ദേഹം പറഞ്ഞു

ബി എസ്

എസ് ഇ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും പത്താംക്താസ് പരീക്ഷാഫലം ആദ്യമായി നേരത്തെ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പ്രവേ ശന നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം അറിയിച്ചു

എച്ച്

ഇത് നടപ്പാക്കാൻ നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കുമെന്നും ഷാജഹാൻ അറിയിച്ചു ഈ അധ്യയനവർഷത്തെ നീറ്റ് പി

മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ഗവർണർമാരുടെ ബോർഡുമായി ആരോഗ്യമന്ത്രാലയം നടത്തിയ കൂടിയാലോചനയെ തുടർന്നാണ് നടപടി

തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ക്രമക്കേട് നടന്നതായി സി

ഐ എമ്മും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിലാണ് നടപടി

ഐക്യരാഷ്ട്ര സംഘടന ജനീവയിൽ സംഘടിപ്പിക്കുന്ന ലോക പുനർനിർമ്മാണ സമ്മേളനം ഉൾപ്പെടെ പരിപാടികളിൽ പങ്കെടു ക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചു

വെള്ളപ്പൊക്കം ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങൾ നേരി ടുന്നതിൽ നടപ്പാക്കുന്ന മാതൃകകൾ മനസ്സിലാക്കുന്നതിനാണ് നെതർലാൻഡ് സന്ദർശനം കിഫ്ബിയുടെ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്യുന്ന ചടങ്ങിലും മുഖ്യമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിച്ചിട്ടില്ലെന്ന് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കേന്ദ്രഗവൺമെന്റ് നടപ്പാ ക്കിയ വികസനപ്രവർത്തനങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജന ങ്ങൾക്കറിയാമെന്നും മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു വിക സനത്തിന്റെ കാര്യത്തിൽ ഏത് പാർട്ടിയാണ് സംസ്ഥാനം ഭരിക്കു ന്നതെന്ന് നോക്കാറില്ലെന്നും അദ്ദഹം പറഞ്ഞു പൊലീസുകാരുടെ തപാൽ വോട്ട് ക്രമക്കേടിൽ നടപടി ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു ക്രമക്കേട് നടന്നതായി ഇന്റലിജൻസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ ഡി ജി പി യ്ക്ക് വകുപ്പുതല നടപടി സ്വീകരിക്കാമായിരുന്നുവെന്ന് അദ്ദേഹം ഒരു വാർത്താചാ നലിനോട് പറഞ്ഞു ഏത് സാഹചര്യത്തിലാണ് ഡി ജി പി റിപ്പോർട്ട് തനിക്ക് അയച്ചതെന്ന് പരിശോധിച്ച ശേഷം തുടർനടപടി സ്വീക രിക്കുമെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു ഛത്തീസ്ഗഢിലെ ദന്തേവാഡയിൽ സുരക്ഷാസേനയുമായു ണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു പുലർച്ചെ ഗൊണ്ടാറസ് വനത്തിൽ പ്രത്യേക സുരക്ഷാസേന നട ത്തിയ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിടെയുണ്ടായ ഏറ്റുമുട്ടലി ലാണ് ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടത് കൊച്ചുവേളി നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസും തിരുവ നന്തപുരം മധുര അമൃത എക്സ്പ്രസും നാളെ സ്വതന്ത്ര ട്രെയി നുകളായി സർവീസ് തുടങ്ങും

ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും

ഇന്നലെ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈയെ തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ കടന്നിരുന്നു

അത് ജയിച്ചാൽ ചെന്നൈയ്ക്ക് ഫൈനലിലെത്താം കോഴിക്കോട് ജില്ലാ ഫുട് ബാൾ അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാ ലീഗ് ചാംപ്യൻഷിപ്പിൽ ഇ ഡിവിഷനിൽ എം ജി എം ഫുട്ബാൾ അക്കാദമി ജേതാക്കളായി ഫൈനലിൽ എം ജി എം ഒന്നിനെതിരെ ആറ് ഗോളുകൾക്ക് കടത്തനാട് രാജ ഫുട്ബാൾ അക്കാദമിയെയാണ് പരാജയപ്പെടുത്തിയത് വയനാട് പുൽപ്പള്ളിയിൽ ജനവാസമേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇനിയും തുരത്താനായില്ല

ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഗവൺമെന്റ് ഉത്തരവ് കിട്ടിയാൽ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു അപായസൂചന കണക്കിലെടുത്ത് മുള്ളൻകൊല്ലി പഞ്ചായ ത്തിലെ പാറക്കടവ് വണ്ടിക്കടവ് പ്രദേശങ്ങളിൽ ജില്ലാകലക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു അന്തരിച്ച പ്രമുഖ നിയമപണ്ഡിതൻ ഡോക്ടർ എൻ

ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെ തിരുവനന്തപുരത്ത് സ്ഥകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

പ്രായ പൂർത്തിയാ കാത്ത പെൺകു ട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ മലപ്പുറം വളാഞ്ചേരി മുൻസിപ്പൽ കൌൺസിലർക്കുനേരെ പൊലീ സ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു

എഫ് കക്ഷിര ഹിത കൌൺസിലർ തൊടുവാനൂർ കാളിയാല നടക്കാവിൽ ഷംസു ദ്ദീനെതിരെയാണ് മലപ്പുറം പൊലീസ് നോട്ടീസ് പുറപ്പെടുവിച്ചത് ജലപാത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് കനോലി കനാലിലെ ചളിനീക്കൽ ആരംഭിച്ചു കനാൽ കല്ലായ്പുഴയുമായി ചേരുന്ന ഭാഗത്താണ് ചളി നീക്കി ആഴം കൂട്ടുന്ന പ്രവൃത്തി തുടങ്ങിയത്

ചിന്താവിഷ്ടയായ സീതയിലൂടെ പ്രക്ഷുബ്സമായ സ്ത്രീയെ വീണ്ടെടുക്കുകയാണ് കുമാരനാശാൻ ചെയ്തതെന്ന് എഴുത്തുകാരൻ കല്പ്പറ്റനാരായണൻ പറഞ്ഞു